പലയിടത്തും അക്രമസംഭവ ങ്ങൾ ശബരിമല വിഷയത്തിൽ ബിജെപി നേതാക്കൾ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു

സി സി പുനസംഘടനാ വിഷയം സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തു ചില രാജ്യങ്ങൾ ഭീകരപ്രവർത്തനം നയമായി സ്വീക രിക്കുന്നിടത്തോളം കാലം ആഗോളഭീഷണി തുടരുമെന്ന് കരസേനാമേധാവി ജനറൽ ബിബിൻ റാവത്ത് ഖേലോ ഇന്ത്യ കായികമേള ഇന്ന് വൈകീട്ട് കേന്ദ്ര മന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഉദ്ഘാടനം ചെയ്യും മുന്നാക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര മന്ത്രി താവർചന്ദ് ഗഹ്ലോട്ടാണ് ബിൽ അവതരിപ്പിച്ചത് ബിൽ ഇന്നലെ ലോക്സഭ പാസ്സാക്കിയിരുന്നു

ബില്ലിനെ രാജ്യസഭയിൽ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് അടക്കം പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്

മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കക്കാർക്ക് ഗവൺമെന്റ് ജോലി കൾക്കും വിദ്യാഭ്യാസത്തിനും ജാതി മത പരിഗണനയില്ലാതെ സാമ്പത്തി കാടിസ്ഥാനത്തിൽ പത്ത് ശതമാനം സംവരണം വൃവസ്ഥ ചെയ്യുന്നതാണ് ബിൽ അതിനിടെ പൌരത്വ ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് രാജ്യ സഭാ നടപടികൾ അൽപസമയം തടസ്സപ്പെട്ടു

തിരുവനന്തപുരം വേണാട് ശബരി എക്സ്പ്രസുകൾ തിരുവനന്തപുരത്തും കോട്ടയം നില മ്പൂർ പാസഞ്ചർ കളമശ്ശേരിയിലുമാണ് ഉപരോധിച്ചത് സമരക്കാരെ പൊലീസ് അറസ്റ്റുചെയ്തു നീക്കി

മലപ്പുറം മഞ്ചേരിയിലും കടയടപ്പിക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇട യാക്കി സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി

മതിയായ സുരക്ഷ ഉറപ്പാക്കാനാവില്ലെന്ന് പൊലീസ് അറിയിച്ച തിനെതുടർന്ന് ജോലിക്കെത്തിയ ജീവനക്കാർ പിന്മാറി എന്നാൽ ശബരിമല സർവ്വീസുകളെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല

എസ് ആർ ടി സി

എന്നാൽ പ്രധാന കേന്ദ്രങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ കൊച്ചി നഗരത്തിൽ കടകൾ തുറന്നിരുന്നുവെങ്കിലും വ്യാപാരം നന്നേ കുറ വായിരുന്നു

കളമശ്ശേരിയിൽ സമരാനുകൂലികൾ കോട്ടയം നിലമ്പൂർ പാസഞ്ചർ തട ഞ്ഞു ഇവരെ പൊലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കൊച്ചി സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് ഏലൂർ കളമശ്ശേരി വ്യവസായ മേഖലകളെയും സമരം കാര്യമായി ബാധിച്ചു മെട്രോ ഇന്നലത്തെപോലെ ഇന്നും സർവ്വീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാർ കുറവാണ്

ഗവർണമെന്റ് ഓഫീസുകളിലും പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളിലും ഹാജർനില കുറവാണ്

നഗരത്തിലെ വലിയങ്ങാടി അടക്കം ജില്ലയിലെ പല പ്രദേശങ്ങളിലും വ്യാപ്രസ്ഥാപനങ്ങളും പെട്രോൾ പാമ്പുകളും തിയേറ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് സ്ഥകാര്യ വാഹനങ്ങൾ വ്യാപകമായി നിരത്തുകളിൽ ഉണ്ട് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ മിഠായിത്തെരുവിൽ കടകൾക്ക് പൊലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താ ലിനെ തുടർന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് ഇവിടെ കടകളിൽ പലതും ഇന്ന് തുറന്നിട്ടുണ്ട് പണിമുടക്കിന്റെ ആദ്യദിനുമായ ഇന്നലെയും മിഠായിത്തെരുവിൽ കടകൾ പ്രവർത്തിച്ചിരുന്നു സെക്രട്ടറിയേറ്റിനുസമീപം പ്രവർത്തിക്കുന്ന എസ്

ഐ

സെക്രട്ടറിയേറ്റ് പരിസരത്ത് പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയവരിൽ ഒരുവി ഭാഗമാണ് രാവിലെ ബാങ്കിനുള്ളിലേക്ക് പ്രവേശിച്ചത് പണിമുടക്ക്ദിനം ബാങ്ക് തുറന്നതാണ് പ്രകോപനത്തിന് കാരണം സെക്രട്ടറിയേറ്റിനു മുന്നിൽ ബിജെപി യുടെ നിരാഹാര സമര പന്തലിനു നേരെ കല്ലെറിഞ്ഞ സിഐടിയു പ്രവർത്തകൻ അറസ്റ്റിലായി തൈക്കാട് സ്വദേശി വിച്ചുവാണ് പിടിയിലായത്

എരവട്ടൂർ സ്വദേശി ശ്രീധറിന്റെ വീടിനു നേരെയാണ് പുലർച്ചെ ബോംബേറുണ്ടായത് ആർക്കും പരിക്കില്ല ബോംബേറിൽ വീടിന്റെ ജനൽചില്ലുകൾ തകർന്നു പണിമുടക്കിന്റെ മറവിൽ ആക്രമണം നടത്തിയത് ആരാണെന്ന് സമര സമിതി അന്വേഷിക്കുമെന്ന് സി

എം

ഇത്തരം സംഭവങ്ങളിലൂടെ സമരത്തിന്റെ ശോഭ കെടുത്താനാവില്ല പണിമുടക്ക് അക്രമം നടത്താന ല്ല തൊഴിലാളി സംഘടനകൾ പുതിയ സമര സംസ്കാരം കൊണ്ടുവര ണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറ ഞ്ഞു ശബരിമല വിഷയത്തിൽ ബിജെപി നേതാക്കൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തുന്നു ബിജെപി സംസ്ഥാന പ്രസി ഡന്റ് പി

ശ്രീധരൻപിള്ള അടക്കം നേതാക്കളാണ് രാഷ്ട്രപതിയെ കാണുന്നത്

ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രാഷ്ട്രപതിയ്ക്ക് കൈമാറുമെന്ന് ശ്രീധരൻപിള്ള നേരത്തെ അറിയിച്ചിരു ന്നു

സി ്ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി കെ

സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കണ മെന്നാണ് കെ

സിയുടെ ആവശ്യം ചില രാജ്യങ്ങൾ ഭീകരപ്രവർത്തനം അവരുടെ ദേശീയ നയമായി നില നിർത്തുന്നിടത്തോളം കാലം ആഗോളതലത്തിൽ ഭീഷണി തുടരുമെന്ന് കരസേനാ മേധാവി ജനറൽ ബിബിൻ റാവത്ത് പറഞ്ഞു യുദ്ധത്തിന്റെ പുതിയ രൂപമായി ഭീകരപ്രവർത്തനം മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം ഡൽഹിയിൽ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ യുവ കായികമേളയായ ഖേലോ ഇന്ത്യക്ക് ഇന്ന് പൂനെയിലെ ബാലെവാഡി സ്പോർട്സ് കോംപ്ലക്സിൽ തുടക്കമാ കും

ഭുവനേശ്വറിൽ ഐ ലീഗ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഇന്നലെ ഒന്നിനെതിരെ രണ്ടുഗോളിന് ഇന്ത്യൻ ആരോസിനെ തോൽപ്പിച്ചു മല യാളി താരം ജോബി ജസ്റ്റിനും ലാൽദാൻമാവിയ റാൾട്ടെയുമാണ് ഈസ്റ്റ് ബംഗാളിന്വേണ്ടി ഗോളുകൾ നേടിയത്

ശബരിമല കരിയിലാംതോടിനും കരിമലയ്ക്കും മധ്യേ കാനന പാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തീർത്ഥാടകൻ മരിച്ചു തമിഴ് നാട് സ്വദേശി പരമശിവം ആണ് മരിച്ചത്

ഇടുക്കി കുട്ടിക്കാനത്ത് തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് ഒരാൾ മരിച്ചു ആന്ധ്ര സ്വദേശി കൃഷ്ണനാണ് മരിച്ചത് മൂന്നു പേർക്ക് പരിക്കേറ്റു പട്ടാമ്പിയിൽ ഒരു കോടിയോളം രൂപയുടെ കുഴൽപണവുമായി മൂന്നു പേർ പിടിയിൽ മുഹമ്മദ് സാഫിർ സഫദ് നിയാസുദ്ദീൻ എന്നിവരെയാണ് കൊപ്പം പൊലീസ് പിടികൂടിയത് രേഖകളില്ലാതെ കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പണം പിടികൂടിയത് വനംവകുപ്പ് ആരോഗ്യ പരിശോധന നടത്താത്ത ആനകളെ പാലക്കാട് ജില്ലയിൽ എഴുന്നള്ളിപ്പിനോ പൊതുപരിപാടികൾക്കോ പങ്കെടുപ്പിക്കുന്നതിന് വിലക്കേർ പ്പെടുത്താൻ തീരു മാനിച്ചു കഴിഞ്ഞദി്പസങ്ങളിൽ ജില്ലയിൽ തുടർച്ചയായി ഉത്സവങ്ങളിൽ പങ്കെടുത്ത ആനകൾ ഇടഞ്ഞ പശ്ചാത്തലത്തിലാണ് നടപടി തെക്കിന്റെ കശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ മഞ്ഞുകാലം ആസ്വദിക്കാൻ സന്ദർശകരുടെ തിരക്കേറി പ്രളയത്തിൽ നിറംമങ്ങിയ ടൂറിസം വിപണി മഞ്ഞിലൂടെ തിരിച്ചു പിടിക്കാനൊരുങ്ങുകയാണ് മൂന്നാർ

ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടലുകൾ സംബന്ധിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് എച്ച് എസ് ബേദിയുടെ അനേഷണ റിപ്പോർട്ട് ഹരജിക്കാർക്ക് നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു റിപ്പോർട്ട് രഹസ്യമാക്കി വെക്കണമെന്ന ഗുജറാത്ത് ഗവൺമെന്റിന്റെ ആവശൃം ചീഫ് ജസ്റ്റീസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളി ബേദിയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ലെന്നും എന്നാൽ ഇതിൽ ഹർജിക്കാർക്ക് മറുപടി നൽകാമെന്നും കോടതി നിരീക്ഷിച്ചു

ബി ഐ

അദ്ദേഹത്തെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് നീക്കിയ കേന്ദ്രഗവൺമെന്റ് നടപടി സുപ്രീംകോടതി ഇന്നലെ റദ്ദാക്കിയിരുന്നു